ത തിരുവനന്തപുരം പൂന്തുറയിൽ കോവിഡ് സൂപ്പർ സ്പ്രെഡ് ഉണ്ടായിരിക്കുന്നതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ത രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം ഏഴേകാൽ ലക്ഷം കവിഞ്ഞു ലോകത്തെ കൊറോണ ബാധിതരുടെ എണ്ണം ഒരു കോടി ഇരുപത്തി അഞ്ചര ലക്ഷത്തിൽപ്പരം

വാർത്തകൾ വിശദമായി തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്ത് കേസിൽ ഫലപ്രദമായ അന്വേഷണം നടത്താൻ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു നയതന്ത്ര ബാഗേജിൽ സ്വർണ്ണം കടത്തിയ സംഭവം ബന്ധപ്പെട്ട എല്ലാ കേന്ദ്ര ഏജൻസികളെയും ഏകോപിപ്പിച്ച് അന്വേഷിക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണ ഏജൻസികൾക്ക് ആവശ്യമായ എല്ലാ സഹായവും പിന്തുണയും സംസ്ഥാന ഗവൺമെന്റ് നൽകും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഇത്തരം സംഭവങ്ങൾ വിവിധ തലങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെടുന്നതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഈ ആവശ്യങ്ങളുന്നയിച്ച് മുഖ്യമന്ത്രി കത്തയച്ചിട്ടുണ്ട്

ഇന്നലെ രാത്രി വൈകി ഇ ഫയലിംഗ് മുഖേന നൽകിയ ഹർജി രജിസ്ട്രി പരിഗണിച്ചശേഷം ജാമ്യാപേക്ഷ സ്വീകരിക്കുന്ന ബഞ്ചിലേക്കയക്കും കേസ് കേന്ദ്ര ഏജൻസികൾക്ക് വിടണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച സ്വകാര്യ ഹരജികളും ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും ദരദ സ്വർണ്ണക്കടത്ത് കേസിൽ റിമാൻഡിൽ കഴിയുന്ന സരിത്തിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ ആവശ്യപ്പെട്ട് കസ്റ്റംസ് നൽകിയ അപേക്ഷ എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിച്ചേക്കും ഇയാളെ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് സരിത്തിന്റെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് അതിനിടെ കേസിൽ ഒളിവിൽ കഴിയുന്ന യുവതിക്കായി കസ്റ്റംസ് തെരച്ചിൽ ഊർജ്ജിതമാക്കി തിരുവനന്തപുരത്തെ വിവിധ കേന്ദ്രങ്ങളിൽ സംഘങ്ങളായി തിരിഞ്ഞ് കസ്റ്റംസ് തെരച്ചിൽ നടത്തിയെങ്കിലും അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല രുമ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്ന് ബി ജെ പി നിയോജക മണ്ഡല കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും നാളെ പഞ്ചായത്ത്തലത്തിലും മറ്റന്നാൾ വാർഡ് തലത്തിലും പ്രതിഷേധ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്

രുദ സമ്പർക്കത്തിലൂടെ കൂടുതൽ കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ച തിരുവനന്തപുരം പൂന്തുറയിൽ സ്ഥിതി അതീവ ഗുരുതരമാണെന്നും അവിടെ രോഗത്തിന്റെ സൂപ്പർ സ്പ്രെഡ് ഉണ്ടായിരിക്കുന്നതായും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ഒരാളിൽനിന്ന് കൂടുതൽ പേരിലേക്ക് രോഗം പകരുന്നതാണ് സൂപ്പർ സ്പ്രെഡ്

രുമ കണ്ണൂർ ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ചികിൽസാ സൌകര്യങ്ങൾ ഒരുക്കാൻ സ്വകാര്യ ആശുപത്രികളുടെ സഹായം തേടുമെന്ന് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളുമായി സംസാരിച്ച് നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കലക്ടറെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി അറിയിച്ചു കണ്ണൂരിൽ കോവിഡ് അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടുതൽ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം ലഭ്യമാക്കുന്നതിന് ഐ

എ പ്രതിനിധികളുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി അറിയിച്ചു രുമ എറണാകുളം ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം കൂടിയ സാഹചര്യത്തിൽ ചെല്ലാനം പഞ്ചായത്ത് പൂർണ്ണമായി അടയ്ക്കാൻ തീരുമാനിച്ചു

സ്ഥിതി മോശമായാൽ ആലുവ മുനിസിപ്പാലിറ്റി പൂർണ്ണമായി അടയ്ക്കുമെന്ന് മന്ത്രി വി

വരാപ്പുഴ മത്സ്യമാർക്കറ്റ് ആലുവ മാർക്കറ്റ് ചമ്പക്കര മാർക്കറ്റ് എന്നിവ അടച്ചിടുമെന്നും മന്ത്രി പറഞ്ഞു

രേര മലപ്പുറം ജില്ലയിൽ മൂന്ന് കോവിഡ് കെയർ സെന്റർകൂടി സജ്ജീകരിച്ചു വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ ആളുകൾ ജില്ലയിൽ എത്തുന്നതിനെത്തുടർന്നാണ് കൂടുതൽ കോവിഡ് കെയർ സെന്ററുകൾ ആരംഭിച്ചത്

സാമ്പിൾ ഫലത്തിൽ സംശയം കണ്ടെത്തിയ ഏതാനും പേരെ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കി

താനൂർ നഗരസഭാ പരിധിയിൽ ആക്ടീവ് സർവെയ്ലൻസ് പരിശോധന അവസാനിച്ചു

രുമ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വയനാട് അതിർത്തിയിലൂടെ കേരളത്തിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് അവർക്ക് പോകേണ്ട ജില്ല സൂചിപ്പിക്കുന്ന കളർ സ്റ്റിക്കർ പതിക്കുമെന്ന് ജില്ലാ പൊലീസ് മേധാവി ആർ

സ്റ്റിക്കർ പ്രകാശനം നേരത്തെ കലക്ടറേറ്റിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവ്വഹിച്ചു

ദ്ദേ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ കപ്പലുകളിൽ തിരികെ എത്തിക്കുന്ന നാവികസേനയുടെ സമുദ്രസേതു ദൌത്യം പൂർത്തിയായി

പദ്ധതി നടപ്പാക്കുന്ന ഓരോ സ്കൂളിലും വിദ്യാർത്ഥികളുടെ എണ്ണത്തിനനുസരിച്ച് ക്ലാസ് മുറികളും ലൈബ്രറി ലാബ് ശുചിമുറി സംവിധാനങ്ങളും സ്റ്റാഫ് റൂമും സജ്ജീകരിക്കും സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ മുഖേനയാണ് നിർമ്മാണ നടപടികൾ

പരിമിതികൾ അക്കാദമിക് മികവിന് തടസ്സമല്ലെന്നും ഇത്തരം വിദ്യാർത്ഥികളെ മുഖ്യധാരയിലേയ്ക്ക് കൊണ്ടുവരികയാണ് പൊതു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ കാഴ്ചപ്പാടെന്നും മന്ത്രി പറഞ്ഞു

ജെ പി നേതാവും രണ്ട് കുടുംബാംഗങ്ങളും ഭീകര പ്രവർത്തകരുടെ വെടിയേറ്റ് മരിച്ചു

ജെ പിയുടെ മുൻ ജില്ലാ പ്രസിഡന്റായ വാസിൻ ബാരിയ്ക്കും പിതാവിനും സഹോദരനും നേരെ മോട്ടോർ ബൈക്കിലെത്തിയ അക്രമി സംഘം വെടിവെയ്ക്കുകയായിരുന്നു

ജെ പി നേതാവിന്റെയും കുടുംബാംഗങ്ങളുടെയും കൊലപാതകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി

പി അധ്യക്ഷൻ ജെ പി നദ്ദയും അനുശോചനം അറിയിച്ചു

നിലവിൽ യാത്രാശേഷിയേക്കാൾ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന റൂട്ടുകളിലായിരിക്കും പുതിയ സർവ്വീസുകൾ